പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അയോധൃ തർക്ക ഭൂമി കേസിന് വിരാമം ക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റ് രൂപീകരിക്കാൻ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മസ്ജിദ് നിർമ്മിക്കാനായി അഞ്ചേക്കർ ഭൂമി നൽകണമെന്നും സൂപ്രീംകോടതി നിർദ്ദേശം

പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ ദേരാ ബാബാ നാനാകിൽ കർതാർപുർ ഇടനാഴിയുടെ ഇന്റഗ്രേറ്റഡ് ചെക്ക്പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ പൂരൂഷ വിഭാഗം ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രങ്കി റെഡ്സി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് പരാജയം

രാമക്ഷേത്ര നിർമ്മാണത്തിനായി മൂന്ന് മാസത്തിനുള്ളിൽ ട്രസ്റ്റ് രൂപീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീംകോടതിയുടെ ഉത്തരവ് പകരം പള്ളി നിർമ്മിക്കുന്നതിന് സുന്നി വഖഫ് ബോർഡിന് അനുയോജ്യമായ സ്ഥലത്ത് അഞ്ച് ഏക്കർ ഭൂമി നൽകുവാനും കോടതി നിർദ്ദേശം നൽകി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ഏകകണ്ഠമായ വിധി നിർമോഹി അഖാഡയ്ക്ക് ട്രസ്റ്റിൽ മതിയായ പ്രാതിനിധ്യം നൽകാവുന്നതാണെന്ന് ഉത്തരവിൽ പറയുന്നു

നിർമോഹി അഖാഡ രാംലല്ല സുന്നി വഖഫ് ബ്രോർഡ് തുടങ്ങിയ കക്ഷികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ എസ്

ബോബ്ഡെ ഡി

ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ അബ്ദുൾ നസീർ എന്നീപ്പരും ഉൾപ്പെട്ട ഭരണഘടനാ ബഞ്ചാണ് വിധി പ്രസ്താവിച്ചത്

നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേസ് അവസാനിച്ചതായും രാജ്യമൊട്ടാകെ വിധിയെ പിന്തുണയ്ക്കുകയും ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ വികസനത്തിനായി എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന ലക്ഷ്യത്തിനായി എല്ലാവരും ഒന്നിക്കാനും ശ്രീ

ഒന്നിക്കാനുള്ള സന്ദേശമാണ് ഇന്നത്തെ വിധി നൽകുന്നതെന്നും സങ്കീർണമായ തർക്കങ്ങൾ നിയമ സംവിധാനത്തിലൂടെ പരിഹരിക്കാനാകുമെന്ന് സുപ്രീം കോടതി തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു നിയമ വ്യവസ്ഥയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ശോഭനമായ ഭാവിക്കായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു വോയ്സ് വിധിയെ സ്വാഗതം ചെയ്ത ക്രേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മഹത്തായ സംസ്ക്കാരത്തിനും കൂടുതൽ ശക്തി പകരുന്നതാണ് കോടതി വിധിയെന്ന് അഭിപ്രായപ്പെട്ടു സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് അയോഗ്യ കേസിലെ വിധി എന്ന് വിശേഷിപ്പിച്ച ശ്രീ ഷാ കോടതിവിധിയെ സമപ്പിത്തയോടെ സ്വീകരിക്കാനും സമാധാനവും സൌഹാർദ്ദവും നിലനിർത്താനും എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു സുപ്രീംകോടതി വിധിയെ അംഗീകരിക്കാനും സമാധാനപരമായ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാനും ജനങ്ങളോട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു അയോധ്യകേസിലെ വിധിയെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ സർസംഘ് ചാലക് ഡോ

സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂട്ടിച്ചേർത്തു

വിധിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു അയോധ്യ കേസിലെ വിധിയെ കോൺഗ്രസ് പാർട്ടിയും സ്വാഗതം ചെയ്തു സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് സുപ്രീം കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്തപ്പോൾ ആൾ ഇന്ത്യ മുസ്സീം പെഴ്സണൽ ലോ ബോർഡ് വിധിയിൽ പുനപ്രിശോധനാ ഹർജി ഫയൽ ചെയ്യുമെന്ന് അറിയിച്ചു എന്നാൽ അയോധ്യ കേസിലെ പരാതിക്കാരനായ ഇക്ബാൽ അൻസാരി കോടതി വിധി മാനിക്കുന്നതായി അറിയിച്ചു

രാമക്ഷേത്ര നിർമ്മാണത്തിനായി രൂപീകരിക്കപ്പെടുന്ന ട്രസ്റ്റിൽ തങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം നൽകിയതിന് ് കേസിലെ മറ്റൊരു കക്ഷിയായ നിർമോഹി അഖാഡ സുപ്രീംകോടതിക്ക് നന്ദി പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ

അധ്യക്ഷൻ എം

സ്റ്റാലിൻ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ

സുപ്രീംകോടതിയുടേത് നിർണായകമായ വിധിയാണെന്ന് വിശ്വഹിന്ദ് പരിഷത്ത് പറഞ്ഞു അയോധ്യ കേസിലെ സുപ്രീംകോടതി വിധിയെ പൂർണമനസ്സോടെ സ്ഥാഗതം ചെയ്യണമെന്ന് ക്യേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പ്രസ്താപ്പന്യിൽ പറഞ്ഞു വിധിയെ ആരുടെയെങ്കിലും വിജയമായോ പ്രാ്ജയമായോ കാണരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ദേശവിരുദ്ധതയും മതസ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള പരിപാടികൾ സംപ്രേക്ഷണം ചെയ്യരുതെന്നാണ് നിർദേശം രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും കോടതി അലക്ഷ്യപരമായ കാര്യങ്ങളും സംപ്രേക്ഷണം ചെയ്യരുതെന്നും മുന്നറിയിപ്പിലുണ്ട്

കർതാർപൂർ ഇടനാഴി തുറന്നതോടെ ദർബാർ സാഹിബ് ഗുരുദാരയിൽ പ്രണാമമർപ്പിക്കുന്നത് സൌകര്യപ്രദമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിയതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന് ശ്രീ

ഗുരു നാനാക് ദേവ് മാനവരാശിക്ക് ഒട്ടാകെ ബഹുമാനീയനും പ്രചോദനവുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർതാർപൂർ ഇടനാഴിയിലൂടെ സിഖ് തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് ഉച്ചയ്ക്കു ശേഷം പാകിസ്ഥാനിൽ പ്രവേശിച്ചു

ഉദ്യോഗസ്ഥരുമായി നടത്തിയി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരീക്കുകയായിരുന്നു മന്ത്രി ദേശീയ തലസ്ഥാനമായ ഡൽഫീയിൽ മലിനീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി തയാറ്ാക്കാനാണ് ചർച്ച നടത്തിയത്

അടുത്ത വർഷം ഏപ്രിൽ മുതൽ ഭാരത് സ്റ്റാൻറ്റേർഡ് ആറ് വാഹനങ്ങൾ ഡൽഹിയിൽ നിരത്തിലിറങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു

മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് തലസ്ഥാനമായ ഡറാഡൂണിൽ നടന്ന സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു

ശുദ്ധജല വിതരണം ചികിത്സാ സൌകര്യം മലിനീകരണ നിയന്ത്രണം ശുചിമുറി സൌകര്യം സുരക്ഷ യാത്രാ സൌകര്യം റോഡുകളുടെ അറ്റകുറ്റപ്പണി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗ്സ്ഥർക്കുള്ള താമസ സൌകര്യം തുടങ്ങിയ കാര്യങ്ങളും യോഗം അവലോകനം ചെയ്തു

ലോക ഒന്നാം നമ്പർ ഇന്തോനേഷ്യൻ സഖ്യം മാർകസ് ഫെർനാൾഡി ഗിദയോൻ കെവിൻ സഞ്ജയ സുകാമുൾജോ ആണ് ഇന്ത്യൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത്

ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ തമിഴ്നാടിനെ എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കേരളത്തിന്റെ പൈനൽ റൌണ്ട് പ്രവേശനം മത്സരത്തിൽ ജിതിൻ എം

ഈ പ്രദേശത്ത് നിന്നൂർ നാല് ലക്ഷം പേരെ മാറ്റി പാർപ്പിച്ചു